ന് ആഗോള തലത്തിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് ഇന്ത്യയിലെന്ന് ആരോഗൃ മന്ത്രാലയം

ഹൈദരാബാദിനെ തോൽപ്പിച്ച് ഐ

എൽ ക്രിക്കറ്റ് ഫൈനലിൽ

അഞ്ച് എൽ ഇ

കേരളത്തിനു പുറമേ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തെലങ്കാന ഉത്തരാഖണ്ഡ് തമിഴ്നാട് ചണ്ഡിഗഡ് ജമ്മു കശ്മീർ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് നെല്ല് സംഭരണം പുരോഗമിക്കുന്നത്

ബീഹാറിലെ വാൽമീകി നഗർ ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണലും നാളെയാണ്

വൻസുരക്ഷാ വലയത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക

മുംബൈ ജൂഹുവിലുള്ള ഇവരുട്ട് പ്പ്സ്തിയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തിനെ തുടർനന്നാണ് നൂദിയാവാലയുടെ ഭാര്യ ശബാന സയീദിനെ അറസ്റ്റ്ക്ലെയ്തത്

മുൻപ് അറസ്റ്റിലായ വാഹിദ് അബ്ബ്ദുൾ കാദിർ ഷെയ്ഖിൽ നിന്നും ലഭിച്ച പ്രഥമ വിവരമനുസരിച്ചാണ് പരിശോധന നടത്തിയത് നേരത്തെ നാദിയാവലയെ നാർകോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു

പദ്ധതി അടുത്ത വർഷം മാർച്ചോടെ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്

ഗുണഭോക്താക്കളുടെ പ്രതികരണത്തെ തുടർന്നാണ് നിബന്ധനകളിൽ ഇളവ് വരുത്തുന്നത്

പ്രതിദിന പരിശോധന സ്ഥിരമായി എഴുപതിനായിരത്തിൽ എത്തിക്കാനാണ് സ്ലംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്

എൽ ക്രിക്കറ്റിൽ ആദ്യമായി ഡൽഹി കൃാപിറ്റൽസ് ഫൈനലിൽ കടന്നു

ഇന്ന് നടക്കുന്ന വനിത ടാന്റിക്ക് കിക്കറ്റ് ഫൈനലിൽ ഹർമൻ പ്രീത് നയിക്കുന്ന സൂപ്പർ നോപ്പിൽും സ്മൃതി മന്ദാന നയിക്കുന്ന ട്രെയൽ ബ്ലെയേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ടാം നമ്പർ താരമായ റഫേൽ നദാലിനെ തോൽപ്പിച്ചാണ് ഏഴാം നമ്പർ താരമായ ജർമ്മനിയുടെ സ്വരേവ് സെമിയിൽ കടന്നത്

പാരീസ് മാസ്റ്റേഴ്സ് നേടുന്ന നാലാമത്തെ റഷ്യൻ താരമാണ് ഡാനിൽ

കഴിഞ്ഞ ആറ് മാസക്കാലത്തിനിടയിലെ ഏറ്റവും വലിയ രോഗ മരണനിരക്കാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും

ഇരുരാജൃങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിന്റെ ആദ്യ സൂചനയാണിത്